ഇന്ത്യൻ ഭാഗത്തെ സംയോജിത ചെക്പോ സ്റ്റായിരിക്കും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുക പാക്കിസ്ഥാനിലെ നരോ വൽ ജില്ലയിൽ സ്ഥിതിചെയ്യുന്ന കർതാർപൂർ സാഹിബിലേക്കാണ് ഇടനാഴി നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യൻ തീർത്ഥാടകർക്ക് വിസ ഇല്ലാതെ പാക്കിസ്ഥാ നിലെ കർതാർപൂർ ദർബാർ സാഹിബിലേക്ക് തീർത്ഥയാത്ര നടത്താൻ അവസരം ഒരുക്കുന്നതാണ് കർതാർപൂർ ഇടനാഴി രുട്ട്ട്ട്ട്ട്ട്ട്ട വിവരാവകാശ നിയമം ജനങ്ങൾക്കും ഗവൺമെന്റിനും ഇടയിലെ അക ലം കുറക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിപ്രായപ്പെട്ടു ന്യൂ ഡൽഹിയിൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ വാർഷിക കൺവെൻഷ നിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗവൺമെന്റ് നടപടികൾ വിവ രാവകാശ അപേക്ഷ ഇല്ലാതെതന്നെ എല്ലാവർക്കും ലഭ്യമാക്കുന്ന കാലഘട്ട മാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് അമിത് ഷാ അറിയിച്ചു സുതാര്യമായ നടപടിക്രമങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കുകയെന്ന ലക്ഷ്യം വൈകാതെ കൈവരിക്കുമെന്നും അമിത്ഷാ വൃക്തമാക്കി രുട്ട്ട്ട്ട്ട്ട്ട്ട്ട ഹോളിഫാമിലി സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപക വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയെ ഫ്രാൻസിസ് മാർപാപ്പ ഇന്ന് വിശുദ്ധയായി പ്രഖ്യാപി ക്കും

മറിയം ത്രേസൃയടക്കം അഞ്ചുപേരെയാണ് ഇന്ന് വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നത് ചടങ്ങിൽ മലയാളത്തിലും പ്രാർത്ഥനയും ഗാനാർച്ചനയും ഉണ്ടാകും മറിയം ത്രേസ്യയുടെ മാതൃരൂപതയിലെ ഇരിങ്ങാ ലക്കുട മെത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ ചടങ്ങിൽ സഹകാർമികനാകും കേന്ദ്ര സഹമന്ത്രി വി മുരളീധരന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ സംഘം ചട ങ്ങിന് സാക്ഷ്യം വഹിക്കാൻ വത്തിക്കാനിലെത്തി

വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന നാലാ മത്തെ മലയാളിയാണ് വാഴ്ത്തപ്പെട്ട മറിയം ത്രേസൃ രുവ്വദിയ ഗവൺമെന്റ് ജനറൽ ആശുപത്രികൾക്ക് നൽകുന്ന കായകല്പ അവാർഡിന് സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനം കോഴിക്കോട് ഗവൺമെന്റ് ബീച്ച് ആശുപത്രിക്ക് ലഭിച്ചു ന്യൂഡൽഹിയിൽ കേന്ദ്ര ആരോ ഗൃമന്ത്രി ഡോക്ടർ ഹർഷവർധനിൽ നിന്ന് ബീച്ച് ആശുപത്രി അധികൃതർ പുരസ്കാരം ഏറ്റുവാങ്ങി ജില്ലാ ആശുപത്രി വിഭാഗത്തിൽ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയും താലൂക്ക് ആശുപത്രി വിഭാഗത്തിൽ പാലക്കാട് കോട്ട ത്തറ ട്രൈബൽ സ്പെഷ്യൽ ആശുപത്രിയും പുരസ്കാരത്തിന് അർഹരായി ദർവ്വെടുക മരടിലെ അനധികൃത ഫ്ളാറ്റുകൾ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട പരി സരവാസികളുടെ ആശങ്ക പരിഹരിക്കാൻ ഇന്നും നാളെയും നാലിടങ്ങളിൽ സബ് കലക്ടർ സ്നേഹിൽ കുമാർ സിംഗിന്റെ നേതൃത്വത്തിൽ യോഗം ചേരും

ഡിസംബർ അവസാനമോ ജനു വരി ആദ്യമോ ഫ്ളാറ്റുകൾ പൊളിക്കാനാണ് തീരുമാനം

ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിഞ്ഞ വർക്കാണ് ആദ്യഘട്ടത്തിൽ തുക വിതരണം ചെയ്തത് ബന്ധുവീടുകളി ലേക്ക് മാറിത്താമസിച്ചവരുടെ കണക്കെടുപ്പ് അന്തിമ ഘട്ടത്തിലാണ് കോഴി ക്കോട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സഹായം കൈമാറി യത്

ദർശ്രമാ കൂടത്തായി കൊലപാതക പരമ്പരയിൽ ജോളിക്ക് സയനൈഡ് നൽകി യത് രണ്ടുപേരാണെന്ന് പൊലീസ് അറിയിച്ചു ഇതിലൊരാൾ മരിച്ചതിനാൽ ആവഴി അന്വേഷണം നടത്താനാവില്ല കേസിൽ ജോളിയുടെ ഭർത്താവ് ഷാജു വിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചു ജോളി യുടെയും ഷാജുവിന്റെയും മൊഴികൾ പരിശോധിച്ച് അന്വേഷണം മുന്നോട്ടു കൊണ്ടുപോകാമെന്നാണ് സംഘത്തിന്റെ വിലയിരുത്തൽ ഇതോടൊപ്പം ഇടുക്കി ജില്ലയിലെ കട്ടപ്പ്ന വാഴവര രാജകുമാരി എന്നിവിടങ്ങളിലെ ജോളി യുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച് നടപടി ക്രമങ്ങൾ പൂർത്തിയാക്കിവരികയാണ്

ഇന്ന് ഇന്ത്യ രണ്ടാംഇന്നിംഗ്സ് ആരംഭിക്കുമോ ദക്ഷി ണാഫ്രിക്കയോട് ഫോളോഓൺ ചെയ്യാൻ ആവശ്യപ്പെടുമോ എന്ന് രാവിലെ അറിയാം

മേരികോം ഉൾപ്പെടെ മൂന്നുപേർക്കും വെങ്കലം കൊണ്ട് തൃപ്തിപ്പെ ടേണ്ടിവന്നു

സെമിയിൽ സ്വീഡന്റെ ഫെലിക്സ് ബറെസ്റ്റിനെ പ രാജയപ്പെടുത്തിയാണ് ലക്ഷ്യാസെൻ ഫൈനലിലെത്തിയത് ഇന്ന് ഫൈന ലിൽ ജപ്പാന്റെ യുസുകെ ഓണോദേരയെ ലക്ഷ്യസെൻ നേരിടും

ശ്രീശങ്കറും സ്വർണം സ്വന്തമാക്കി

ദർശ്ശക്കും അടുത്തമാസം അഞ്ചിന് കോഴിക്കോട്ട് ആരംഭിക്കുന്ന സന്തോഷ്ട്രോഫി ദക്ഷിണമേഖലാ യോഗൃതാ മത്സരങ്ങൾക്ക് കോർപ്പറേഷൻ ഇ എം

കോഴിക്കോട് എറണാകുളം ഇടുക്കി ജില്ലകളിലായിരിക്കും മത്സരങ്ങൾ

പെരുമ്പാവൂർ തൊടുപുഴ എന്നിവിടങ്ങളിലാണ് മറ്റിനങ്ങളിലെ മത്സ രങ്ങൾ രുട്ട്ട്ട്ട്ട്ട്ട്ട പാലായിൽ സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റിനിടെ ഹാമർ തലയിൽ വീണ് പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു

പരമ്പരയിലെ ശേഷി ക്കുന്ന മത്സരം ഇന്ന് പെരിന്തൽമണ്ണയിൽ നടക്കും

ദർശ്ശിക്കു പൊതുജനാരോഗ്യ സംരക്ഷണരംഗത്ത് വലിയ മുന്നേറ്റം കൈവരിക്കു കയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി എം

ആർദ്രം മിഷൻ വഴി ഗവൺമെന്റ് ആശുപത്രികളുടെ നിലവാരം ഉയർത്തിയത് ജന ങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെട്ടതായി അദ്ദേഹം അറിയിച്ചു കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച പോസ്റ്റുമോർട്ടം യൂണിറ്റ് ഉദ്ഘാ ടനം ചെയ്യുകയായിരുന്നു മന്ത്രി

എം നിലയത്തിന് രണ്ട് ദേശീയ പുരസ്കാ രങ്ങൾ ലഭിച്ചു മികച്ച കാർഷിക പരിപാടിക്കും യുവവാണി ഡോക്യുമെന്ററി വിഭാഗത്തിലുമാണ് അവാർഡുകൾ സ്വാമി നിർമലാനന്ദ ഗിരിയുടെ പ്രഭാഷ ണത്തെ ആസ്പദമാക്കി രചിച്ച അന്നവിചാരം എന്ന ചിത്രീകരണവും വെളി ച്ചത്തിലേക്കുള്ള ഗോൾ എന്ന ഡോക്യുമെന്ററിയുമാണ് അവാർഡിന് അർഹ മായത് പി ബാലനാരായണൻ രചിച്ച പരിപാടികൾ ടി സി ഇന്ദിര ശ്രീപാർവതി എന്നിവർ സംവിധാനം ചെയ്തു

ഡി

പകരം ഇന്നുമുതൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി കളുടെ നേതൃത്വത്തിൽ രാപകൽ സമരം നടത്തുമെന്ന് ഡി സി സി പ്രസി ഡന്റ് അറിയിച്ചു

ഇന്നലെ ചെറുതോ ണിയിൽ എത്തിയ പോഷൺ എക്സ്പ്രസിന് വൻ സ്വീകരണം ഒരുക്കിയി രുന്നു രുട്ട്ട്ട്ട്ട്ട്ട്ട തീരദേശ നിയന്ത്രണ വിജ്ഞാപനത്തിലെ പുതിയ ഇളവുകൾ ടൂറി സം വൃവസായ നിർമ്മാണ ലോബികളെ സഹായിക്കാനാണെന്ന് നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറം കുറ്റപ്പെടുത്തി ഇത്തരക്കാർക്ക് കടലോരങ്ങളും കായലോരങ്ങളും കൈയ്യടക്കാൻ ഇളവുകൾ വഴിയൊരുക്കുമെന്ന് ഫോറം ജനറൽ സെക്രട്ടറി ടി പീറ്റർ കോഴിക്കോട്ട് പറഞ്ഞു ദർവ്വെട്ടറ മതിയായ രേഖകളില്ലാതെ മൊബൈൽ സിം കണ്ക്ഷൻ നൽകുന്ന വർക്കെതിരെ നടപടിയെടുക്കുമെന്ന് കൊല്ലം സിറ്റി പൊലീസ് കമ്മീഷണർ പി

രദ്ദേഷ്ടങ കണ്ണൂർ ജില്ലയിൽ ഭവനരഹിതർക്കായി നിർമ്മിക്കുന്ന ഫ്ളാറ്റ് സമുച്ചയ ത്തിന് റവന്യൂ വകുപ്പ് വിട്ടുനൽകിയ ഭൂമിയിൽ സർവേ നടപടികൾ തുട ങ്ങി